മറികടക്കുമെന്ന് പ്രധാനമ്പ്ത് ഡിജിറ്റൽ ആരോഗൃ പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപ്പിച്ചു എല്ലാവർക്കും ഡിജിറ്റൽ ആരോഗൃ തിരിച്ചറിയ്ക്കാർഡ് നൽകും

മാതൃകയെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

ദേശസുരക്ഷയിൽ രാജ്യത്തിന്റെ അഭിമാനത്തിന് പോറലേൽപ്പിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്

പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ന്യൂഡൽഹീയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പ്രിതിക് ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു

് രാജ്യം നിശ്ചയദാർഢ്യത്തോടെ കോവിഡ് പ്രതിസന്ധി മറികൂടക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

എല്ലാ പ്രതിസന്ധിയും രാജ്യം ഒറ്റക്കെട്ടായി നേരിടും

സ്വാതന്ത്രൃത്തിന് വേണ്ടി പോരാടിയവരെ സ്മരിക്കേണ്ട ദിനമാണ് ഇന്ന് രാജ്യസുരക്ഷിയ്ക്കുവേണ്ടി നിലക്കൊള്ളുന്ന സൈന്യത്തിനും അർദ്ധസൈനിക വിഭാഗത്തിനും കൃതജ്ഞത അർപ്പിക്കേണ്ട സമയമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ആയിരം ദിവസങ്ങൾക്കുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി

സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തും ജമ്മുകശ്മീരിന്റെ വികസനയാത്രയിൽ ഈ വർഷം വളരെ നിർണ്ണായകമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരതയെയും രാജ്യത്തിനെതിരായ കടന്നുകയറ്റത്തെയും രാജ്യം കാര്യക്ഷമമായാണ് നേരിടുന്നത്

ലഡാക്കിൽ നമ്മുടെ സേന പ്രകടിപ്പിച്ച നിശ്ചയദാർഢൃം ലോകം കണ്ടതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാജ്ഞലി അർപ്പിച്ചു ശേഷമാണ് പ്രധാനമന്ത്രി സ്വാതന്ത്യ ദിനാഘോഷത്തിൽ പങ്കെടുത്ത്ത്

സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗം നടത്തിയ ധീര സൈനികർക്ക് ശ്രീ നായിഡു ശ്രദ്ധാജ്ഞലി അർപ്പിച്ചു

കോവിഡ് പശ്ചാത്തലത്തിലും ദേശീയ ആഘോഷത്തിന്റെ എല്ലാ പ്രൌഡിയും പ്രകടമാക്കിയായിരുന്നു സ്വാതന്ത്രൃദിനാഘോഷങ്ങൾ നടത്തിയത്

രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഇത് കണക്കില്പ്ടുത്ത് പൊതു ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയൂകൃവിക്സിപ്പിക്കുകയും വേണം ലോകത്തെ പിടിച്ചുലച്ച കോവിഡ് പ്രി മ്ഹാമാരിയുടെ വ്യാപനത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞും ഇത് ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് രാഷ്ട്രപതി പ്പറഞ്ഞു കോവിഡ് മഹാമാരിയ്ക്കിടെ ലോകത്തിന്റെ വിവിധ ഭാഗുങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ വന്ദേഭാരത് ദൌത്യത്തിലൂട്ട്ടു ന്യൂട്ടിലെത്തിച്ചു

എറണാകുളം തൃശൂർ വയനാട് കണ്ണൂർ എന്നിവിടങ്ങളിൽ ജില്ലാ കളക്ടർമാരും മലപ്പുറത്ത് ഡെപ്യൂട്ടി കളക്ടറും കോഴിക്കോട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും പതാക ഉയർത്തി

മുഖ്യമന്ത്രിയും മന്ത്രിമാരായ കെ കെ ശൈലജ എ സി മൊയ്ദീൻ ഇ ചന്ദ്രശേഖരൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവരും സ്വയം നിരീക്ഷണത്തിൽ പോയൂ സാഹചരൃത്തിലാണ് സ്വാതന്ത്രൃദിനാഘോഷ ചടങ്ങിൽ അഭിപ്പിട്ടും സ്വീകരിക്കുന്നതിൽ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തീയുത്

ജില്ലയിലെ കോവിഡ് രോഗികളുടെ എണ്ണം വർധിക്കുന്ന സാഹചര്യത്തിൽ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം

ഇതിന്റെ ഭാഗമായി മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു

ടി കൌൺസിലിന്റെ സ്വർണം സംബന്ധിച്ച മന്ത്രിതല സമിതിയോഗത്തിൽ രാജ്യത്തെ സ്വർണനീക്കത്തിന് ഇ വേ ബിൽ ഏർപ്പെടുത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു

കേരളത്തിൽ കർഷകരൂട്ടെ ് ഉൽപാദനച്ചെലവ് കണക്കാക്കിയാൽ നിലവിലെ താങ്ങുവില അപര്യാപ്തമാണെന്ന് മന്ത്രി വി